കേരളത്തിൽ നിയന്ത്രണങ്ങളോടെ ആരാധനാലയ ങ്ങൾ ചൊവ്വാഴ്ച തുറക്കും ഗുരുവായൂരിൽ ദർശന ത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ

അഭിപ്രായ വൃത്യാസങ്ങൾ സമാധാന ചർച്ചകളിലൂടെ പരിഹരി ക്കുമെന്ന് ഇരു രാജ്യങ്ങളും

വിശദാംശങ്ങളുമായി

പരിശോധന കളുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായി കൂടുതൽ സ്വകാര്യ സർക്കാർ ലബോറട്ടറികൾക്ക് അംഗീകാരം നൽതിയതായി ഐ സി എം

രോഗം സ്ഥിരീകരിച്ച് മലപ്പുറം ജില്ലയിൽ ചികിത്സയിലായിരുന്ന പരപ്പനങ്ങാടി സ്വദേശി ഹംസകോയ ഇന്ന് രാവിലെ മരണമടഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബിഡിമാക്കി

അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കർശന നിബന്ധനകളോടെ പ്രവേശനം അനുവദിക്കും

ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിലെ ആസ്ഥാന മന്ദിരത്തിലെ ഉദ്യോഗസ്ഥരാ ണിവർ മന്ദിരം ഇന്നലെ ശുചീകരണം നടത്തി സീൽ ചെയ്തു

കോവിഡ് സ്ഥിരീകരിച്ച ഉദ്യോഗസ്ഥരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഉദ്യോഗസ്ഥരെ കാറന്റീനിൽ പ്രവേശിപ്പിച്ചു

വിദേശ രാജൃങ്ങളിൽ നിന്നും ഇന്തൃക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പരിശ്രമമാണ് ഓപ്പറേഷൻ സമുദ്രസേതുവിലൂടെ പുരോഗമിക്കുന്നത് ദൌത്യത്തി ലൂടെ ഐ

എസ്

മൂന്നാംഘട്ടത്തിൽ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ യു എസ്

ഇതിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ്

കിഴക്കൻ ലഡാക്കിലെ മോൾദോ ചുസൂൾ അതിർത്തി പോയിന്റിലായിരുന്നു ഇന്ത്യ ഷ്ട്രെന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം

കൂന്തൃൻ സംഘത്തെ ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദ്ര സിംഗും ഉട്ച്ചനീ്സ് സംഘത്തെ മേജർ ജനറൽ ലിൻ ലൂയിയും നയിച്ചു

നിലവിലെ സാഹചരൂർ ലഘൂകരിക്കാൻ എല്ലാ തരത്തിലുള്ള നയതന്ത്ര സൈനികതല് ചർച്ചകളും നടത്തുമെന്ന് യോഗത്തിന് മുന്നോടിയായി ഇന്ത്യൻ സേന വ്യക്തമാക്കിയിരുന്നു ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വെള്ളിയാഴ്ച ഇരുരാജ്യത്തെയും വിദേശകാര്യ ഉദ്യോസ്ഥർ ചേർന്ന് വിലയിരുത്തിയിരുന്നു എല്ലാത്തരത്തിലുമുള്ള പ്രതിസന്ധി സമാധാന ശ്രമങ്ങളിലൂടെ പരിഹരിക്കുമെന്നും ഇരുവിഭാഗവും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു

നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലും തിങ്കളാഴ്ച കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും ചൊവ്വാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്